മഹാരാഷ്ട്രയിലും ഉന്നതതല സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര തീരുമാനം

കർഷക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ന് പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ ഇന്ന് രണ്ടിലേറെ തവണ നിർത്തിവച്ചു

ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഇന്ന് ചർച്ച ചെയ്യും

യെ നേരിടും

കൂടുതൽ വിവരങ്ങളുമായി ലിഖിത

ഭൂരിഭാഗം സംസ്ഫാന്ങ്ങളിലും കോവിഡ് കേസുകളും മരണവും കുറയുമ്പോൾ ക്ട്രേളത്തിലും മഹാരാഷ്ട്രയിലും കൂടുതൽ പേരിൽ രോഗം സ്ഥിരീക്ക്രിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വൃക്തമാക്കിട് ന്ാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നുളള വിദഗ്ധർ ഉൾപ്പെട്ട സംഘമാണ് മഹാരാഷ്ട്രയിലേക്ക് പോകുന്നത് കേരളത്തിലേക്കുളള സംഘത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും വിദഗ്ധരും ഉൾപ്പെടുന്നു സംസ്ഥാന ആരോഗ്യ വിഭാഗവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിക്കും ഇരു സംസ്ഥാനങ്ങളിലും പൊതുജനാരോഗ്യരംഗത്ത് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളും കേന്ദ്ര സംഘം നിർദ്ദേശിക്കും

പ്രതിഷേധത്തെ തുടർന്ന് നിർത്തി വച്ച് സ്ഭ് രണ്ട് തവണ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം മുദ്രാവാക്യമു്യർത്തുകയും സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയുമായിരുന്നു

കർഷക പ്രശ്നങ്ങൾ സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെയാണ് പ്രതിഷേധമുയർന്നത് വിഷയം നാളെ ചർച്ച ചെയ്യാമെന്ന് രാജ്യസഭാ ചെയർമാൻ എം

അതേസമയം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് ലോക്സഭയിൽ ഇന്ന് നടക്കുക

കർഷകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം പ്രകീർത്തിച്ചു

രാജ്യത്തിന്റെ മുഴുവൻ താത്പരൃങ്ങൾ പരിഗണിച്ചു വേണം കേന്ദ്ര ബജറ്റ് തയ്യാറാക്കേണ്ടതെന്നും അദ്ദേഹം പ്രതികരിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയെന്ന് കേന്ദ്ര ബജറ്റ് തെളിയിക്കുന്നു ഇതൊരു വിപ്ലവകരമായ ബജറ്റാണെന്നും ശ്രീ ചൌഹാൻ അഭിപ്രായപ്പെട്ടു

ഇതിനനുസൃതമായി എക്സൈസ് തീരുവ കുറച്ചതിനാൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കില്ല അതിനാൽ ഉപഭോക്താക്കൾക്ക് അധികഭാരം ഉണ്ടാവില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം കാർഷിക അടിസ്ഥാന വികസന സെസ് എന്ന പേരിലാണ് ബജറ്റിൽ കേന്ദ്രം ഇന്ധനത്തിന് പുതിയ സെസ് ഏർപ്പെടുത്തിയത്

രക്ഷാസമിതിയുടെ അദ്ധ്യക്ഷ പദവി പവഹിക്കുന്ന ബ്രിട്ടനാണ് ഇക്കാര്യം അറിയിച്ചത് ജനാധിപത്യ സർക്കാരിനെ പുറത്താക്കിയ സൈന്യം ഒരു വർഷത്തേക്ക് മ്യാൻമറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് വിൻമിന്റ സ്റ്റേറ്റ് കൌൺസിലർ ആങ്സാൻ സ്യൂചി തുടങ്ങിയവരെ തടവിലാക്കിയാണ് മൃാൻമറിൽ പട്ടാളം സർക്കാരിനെ അട്ടിമറിച്ചത്

പട്ടാള അട്ടിമറി ജനാധിപത്യത്തിനും നിയമവാഴ്ചയ്ക്കും നേരെയുള്ള അതിക്രമമാണെന്നും ബൈഡൻ പ്രതികരിച്ചു ജനാധിപത്യം ഭീഷണി നേരിടുന്നിടത്തെല്ലാം അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അമേരിക്ക നിലകൊള്ളുമെന്നും ബൈഡൻ വൃക്തമാക്കി

എല്ലാ കക്ഷികളും അഭിപ്രായ ഭിന്നതകൾ ഭരണഘടന്മുഴ് പർവും നിയമപരവുമായ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചൈനീസ് വിദേശ മന്ത്രാലയ വക്തിാപ്പ് വാങ് വെൻബിൻ പറഞ്ഞു

ഇവർക്ക് പകരമായി നിയോഗിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ പേരുകളും തയ്യാറാക്കിയിട്ടുണ്ട്

ഭൂമിയ്ക്കും മനുഷ്യകുലത്തിനും തണ്ണീർത്തടങ്ങൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ച് പൊതുസമൂഹത്തെ എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിച്ചുവരുന്നത്

സംവിധാനങ്ങളുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ദിനാചരണ സന്ദേശത്തിലൂടെ അറിയിച്ചു

എറണാകുളം ജില്ലയിലെ ചെല്ലാനം മലപ്പുറം ജില്ലയിലെ താനൂർ കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ ് എന്നീ മത്സ്യബന്ധന തുറമുഖങ്ങൾ ഈ മാസം കമ്മീഷൻ ചെയ്യും കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗിച്ച് സജ്ജമാക്കുന്നു മൂന്ന് മത്സൃബന്ധന തുറമുഖങ്ങളുടെയും നിർമ്മാണ പ്രിപ്പ്ർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്

വാക്ക്സിൻ നൽകിയതിലൂടെ ഇന്ത്യയ്ക്കും ഒമാനുമിടയിൽ സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന സൌഹൃദം ദൃഢപ്പെട്ടതായി വിദേശകാര്യ മന്ത്രി എസ്

രോഗബാധിതരുടെ എണ്ണത്തിൽ അമേരിക്കയാണ് മുന്നിൽ തൊട്ടുപിന്നിൽ ഇന്ത്യയാണ്

എസ് എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ബംഗളൂരുവിനെ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഒഡീഷ എഫ്

യെ തോൽപ്പിച്ച ജംഷഡ്പൂർ പ്തേ ഓഫ് സാധ്യതകൾ നിലനിർത്തി